മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ശിവസേന എൻ സി

ബാങ്കിംങ് മേഖലയിൽ മിക്ച്ച് നിയന്ത്രണ സംവിധാനം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്ണെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

സി

കോൺഗ്രസ് എന്നീ കക്ഷികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

സി

ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടിയെ ചോദ്യംചെയ്ത് ജൂന്നലെ രാത്രിയാണ് സഖ്യം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്

ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്ക്ക്റെയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തങ്ങളെ ക്ഷണിക്കാൻ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിക്ക് നിർദ്ദേശം ആൽകണമെന്നും ശിവസേന എൻ സി

ഇതോടൊപ്പം പ്രത്യേക നിയമസഭാ സ്മ്മേളനം വിളിച്ച് ചേർക്കാനും സഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം

മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും വിശ്വാസവോട്ടെടുപ്പിനും വഴിയൊരുക്കണമെന്ന പ്രത്യേക ഹർജിയും സഖ്യം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് വിശ്വാസവോട്ടെടുപ്പിന്റെ ദൃശ്യങ്ങൾ പകർത്തണമെന്നും അതിന്റെ പകർപ്പ് കോടതിയിൽ സമർപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

ആകാശവാണി ദൂരദർശൻ ദ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂ ട്യൂബ് ചാനലുകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും ഹിന്ദി പ്രക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും പരിപാടിയുടെ പരിഭാഷ പ്രക്ഷേപണം ചെയ്യും

രാജ്യത്തിന്റെ വികസനത്തിന് പാവപ്പെട്ടവരുടെ ഉന്നമനവും താഴെ തട്ടിലുള്ളവരുടെ ശാക്തീകരണവും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്തരിച്ച മുൻ ഐ

എസ് ഉദ്യാഗസ്ഥൻ പി എസ് കൃഷ്ണന്റെ അനുശേചന യോഗത്തിൽ ന്യൂഡൽഹിയിൽ സംസാരിക്കുകയ്ക്ക്യായിരുന്നു അദ്ദേഹം കൃഷ്ണനെപോലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഭരണഘടന വൃവ്സ്ഥകൾ പ്രാവർത്തികമാക്കിയതായും ് ജനങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നതായിട്ടു ശ്രീ

രാമചന്ദ്രൻ സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആഗോള വിപണിയിൽ ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് വേണ്ട സൌകര്യങ്ങൾ ന ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരായതുകൊണ്ടാണ് ആർ

ഇ

കരാറിൽ ഇന്ത്യ പങ്കാളിയാകത്തതെന്നും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

വാരണാസിയിൽ നാലുദിവസത്തെ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും ഇഷ്ടപ്പെട്ട കേന്ദ്രമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞതായും ക്ട്രേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൂല്പ് പ്രസാംസ്കാരിക പൈതൃകം രാജ്യത്തെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് മന്സ്സിലാകുന്നതിന് ഇത്തരം ഫെസ്റ്റിവലുകൾ അനിവാര്യമാണെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു

പുത്തൻ സാങ്കേതിക വിദ്യകൾ പെട്ടെന്നുള്ള വളർച്ചയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

നിർമ്മാണ മേഖലയിൽ അസമിനെ മികച്ച സംസ്ഥാനമാക്കി മാറ്റാനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അദ്ദേഹം സംരംഭകരോട് ആഹ്വാനം ചെയ്തു കോൺട്രാക്ടർമാർക്കായി നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം പൊതു മരാമത്ത് മന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയോട് ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി കൃഷ്ണ

ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചറി സ്കോർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി വിരാട് കൊഹ്ലി സ്വന്തമാക്കി

ത്രിപുരയിലെ കാർഷികമേഖലയിലുണ്ടായ പുരോഗതി അഗത്തലയിൽ ചേർന്ന യോഗത്തിൽ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജൈവ കാർഷിക സംസ്ഥാനമായ സിക്കിമിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും ഉയർന്ന വിലയ്ക്കാണ് രാജ്യത്തിന്റെ മറ്റുജില്ലകളിൽ വിറ്റഴിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

നാഗ്പൂരിൽ ദേശീയ ക്ഷീര വികസന ബോർഡ് സംഘടിപ്പിച്ച കന്നുകാലി പരിപാലനത്തിലെ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയ്കായിരുന്നു കേന്ദ്രമന്ത്രി

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്ക്ടാൻ കന്നുകാലി പരിപാലനത്തിലൂടെ സാധിക്കും

ശില്പശാല്യ്ക്കൊപ്പം പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്

അറ്റ് ഫിഫ്റ്റി ഡിജിറ്റൽ പ്രദർശനത്തിൽ ഉണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അതുൽ കുമാർ തിവാരി പറഞ്ഞു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ സിനിമകളുടെ പ്രദർശനവും ഡിജിറ്റൽ എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്

മാനവരാശിയുടെ ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാനായിരുന്നു ഗുരു തേജ് ബഹാദൂറെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും എന്നും പ്രസക്തമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

കഴിഞ്ഞ ഒരാഴ്ചയായി ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭത്തെത്തുടർന്ന് ഇന്റർനെറ്റ് കണക്ഷ്ട്രൻ റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ ഈ ആവശ്യത്തോട് ഈഗ്രനിലെ സമൂഹ മാധ്യമ കമ്പനികൾ പ്രതികരിച്ചിട്ടില്ല